സൃഷ്ടിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഫിലിപ്പെൻസ് മലേഷ്യ എന്നീ ര്ാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇന്ത്യ യാത്രാവിലക്ക് ഏർപ്പെടുത്തി

അനുവദിക്കണമെന്ന് സുപ്രീംകോടതി

പാർലമെന്റിന്റെ നടപ്പ് ബജറ്റ് സമ്മേളനം മുൻ നിശ്ചയിച്ച പ്രകാരം ഏപ്രിൽ മൂന്ന് വരെ തുടരുമെന്ന് കേന്ദ്ര സർക്കാർ

മാധ്യമങ്ങളുടെ സഹായത്തോടെ എം

ബിജെപി പാർലമെന്ററി പാർട്ടി യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊറോണ വൈറസ് നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ കേന്ദ്രം സ്വീകരിച്ച നടപടികൾ ആരോഗ്യ മന്ത്രി ഹർഷ വർദ്ദൻ യോഗത്തിൽ അവതരിപ്പിച്ചു

ഇതു സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി

ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷം ഈ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വിമാന സർവ്വീസ് ഉാകുന്നതല്ല

കൊറോണ ബാധിത രാജ്യങ്ങളായ യു എ

സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് വീട്ടിലിരുന്നു തന്നെ ജോലി ചെയ്യാനുള്ള സാഹചര്യം പ്രപ്പോത്സാഹിപ്പിക്കണമെന്നും മീറ്റിംഗുകൾ കഴിവതും വീഡിയ്ക്കേ നടത്തണമെന്നും ആരോഗ്യ മന്ത്രാലയ്ക്കും നിർദ്ദേശിച്ചിട്ടുണ്ട്

ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കണം പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി അടുത്ത് ഇടപഴകരുത് കൈകൾ വൃത്തിയായി കഴുകാതെ കണ്ണ് മൂക്ക് വായ് തുടങ്ങിയ ഭാഗങ്ങളിൽ തൊടരുത് പൊതു സ്ഥലങ്ങളിൽ തുപ്പുകയോ മൂക്ക് ചീറ്റുകയോ ചെയ്യുന്നത് ഒഴിവാക്കണം സോപ്പും വെള്ളവുമുപയോഗിച്ചോ ആൾക്കഹോൾ അടങ്ങിയ ഹാൻഡ് വാഷ് അഥവാ സാനിറ്റൈസർ ഉപയോഗിച്ചോ ഇടയ്ക്കിടെ കൈകൾ വൃത്തിയാക്കണം

രോഗം സ്ഥിരീകരിച്ചവരുമൂായി നേരിട്ട് സമ്പർക്കം ഉണ്ടായിരുന്നവരെ അല്ല ആശുപത്രിയിൽ പ്രപേശിപ്പിച്ചതെന്ന് ജില്ലാ കളക്ടർ പി ബി നൂഹ് പറഞ്ഞുപ്പു വരുന്ന രണ്ടാഴ്ച നിർണായകമാണ്ണെന്നും അദ്ദേഹം പറഞ്ഞു

കണ്ണൂർ കാസർകോട് വയനാട് ജ്ട്രീല്ല്കളിൽ കോറോണ നിരീക്ഷണത്തിൽ ആവുന്നവരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ആണ് പരിശോധനയ്ക്ക് അയയ്ക്കുന്നത്

അതേസമയം ക്ലേസിലെ മറ്റ് മൂന്നു പ്രതികളും വധശിക്ഷയ്ക്ക് സ്റ്റേ അസ്സുപ്പ്ഴിക്കണമെന്ന് ആവശ്യപ്പെട്ട് അന്താരാഷ്ട്ര നീതിന്യായു കോടതിയെ സമീപിച്ചിട്ടുണ്ട്

സമ്മേളനം വെട്ടിച്ചുരുക്കാൻ തീരുമാനമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു

തൊഴിൽ നഷ്ടപ്പെടുന്നവർക്കു വേി കേന്ദ്ര സർക്കാർ ് സമഗ്ര പദ്ധതി ആവിഷ്കരിക്കണമെന്ന് ഡി

അംഗം എം

വായ്പാ പലിശകൾക്ക് ഇളവനുവദിക്കണമെന്ന് കേരളത്തിൽ നിന്നുള്ള എം

കൊറോണ പരിശോധനയ്ക്കായി കൂടുതൽ പരിശോധനാ കേന്ദ്രങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം ബി

അമർ പട്നായികും ഉന്നയിച്ചു

അതിർത്തി ജില്ലയായ പൂഞ്ചിലെ ഇന്ത്യൻ സൈന്മീക് പ്പോസ്റ്റുകൾക്ക് നേരെയും ജനവാസ മേഖലകളിലേയ്ക്കും ക്ല് ഇന്ന് രാവിലെ പാകിസ്ഥാൻ സൈനൃം യാതൊരു പ്രക്കോപ്നവും ഇല്ലാതെ വെടി ഉതിർക്കുകയായിരുന്നു ഇന്ത്യൻ ക്സെന്യം ശക്തമായി തിരിച്ചടിച്ചു

സുരക്ഷാസേനയിൽ ഉപയോഗിക്കുന്ന വിവിധ നൂതന ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങളും അദ്ദേഹം വിലയിരുത്തി

കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥ പരിശീലന വകുപ്പിൻ കീഴിലാണ് വിവരാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്

സുധീർ ഭാർഗവ ഒഴിഞ്ഞ സ്ഥാനത്താണ് ബിമൽ ജുൽക്കയെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിച്ചത്

ധാക്കയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ പ്രധാനമന്ത്രി ഷേഖ് ഹസീന അദ്ദേഹത്തിന് പുഷ്പങ്ങൾ അർപ്പിച്ചു പാർലമെന്റ് സ്പീക്കർ ചീഫ് ജസ്റ്റിസ് മന്ത്രിമാർ തുടങ്ങിയവരും അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു മുജിബ് ബർഷോ എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ബംഗ്ലാദേശിലും അന്താരാഷ്ട്ര തലത്തിലും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നത് കൊറോണ ഭീഷണിയെ തുടർന്ന് പൊതു സമ്മേളനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്

അദ്ദേഹത്തിന്റെ ധീരതയും ബംഗ്ലാ്ദേശിന്റെ പുരോഗതിക്ക് നൽകിയ സംഭാവനകളും എക്കാലവും സ്മരിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി ട്ടിറ്റർ സന്ദേശത്തിലൂടെ അറിയിച്ചു